ലഭൃമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പേർക്ക് കോവിഡ് പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം

സ്ഥിരീകരിച്ചു

നാല് ദിവസത്തെ വാക്സ്ട്രിനേഷൻ യജ്ഞത്തിലൂടെ വാക്സിൻ എടുത്തവരുടെ എണ്ണ്ട് പ്പ്ൻതോതിൽ വർദ്ധിപ്പിക്കാനും പുതിയ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കാനും കഴിഞ്ഞതായി പ്രധാനമന്ത്രി പറഞ്ഞു

ആദ്യമായാണ് ഒരു ദിവസം രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിക്കുന്നത്

കൂടുതൽ വിവരങ്ങളില്ലേക്ക്

ഇതിനായി പ്രത്യേക മാർഗ്ഗ നിർദ്ദേശങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്

കോവിഡ് കേസുകൾ വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചത് വ്യാപകമായ പരിശോധന കർശനമായ നിയന്തണം ഊർജിതമായ വാക്സിനേഷൻ എന്നീട് മൂന്നു തലങ്ങളിലൂടെ കോവിഡ് വ്യാപനം തടയാനാണ് സ്ട്ർക്കാ്ർ ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

എറണാകുളം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ആയിരത്തിന് പുറത്തു കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്

കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ മരണത്തെത്തുടർന്നാണ് തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സുശീൽ ്കുമാർ ലൊഹാനി മാധ്യമങ്ങളോട് പറഞ്ഞു

സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ ക്ടർ ്ട്രൂന മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പോളിംഗ്ൽ പ്രത്യ നടന്നത്

ഭരണകക്ഷിയായ മിസോ നാഷണൽ ഫ്രണ്ട് മുഖ്യപ്രതിപക്ഷമായ സോറം പീപ്പിൾസ് മൂവ്മെന്റ് കോൺഗ്രസ് എന്നീ കക്ഷികൾ തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ശനിയാഴ്ചയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക

കൂച്ച് ബെഹാർ ജില്ലയിലുണ്ടായത് പോലുള്ള അക്രമസംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതലെന്ന നിലയിലാണിത്

മീ വരെ പ്പേശ്തയിൽ ്കാറ്റ് വീശാനും ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൃഷ്ണ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്

എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം ടോസ് നേടിയ രാജസ്ഥാൻ ഡൽഹിയെ ബാറ്റിംഗിനയച്ചു

ജിമ്മുകളും മാളുകളും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുമെന്ന് മുഖ്യമന്ത്രി ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു കോവിഡ് ചികിത്സ നൽകുന്ന ആശുപത്രികളോട് കിടക്കകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി അറിയിച്ചു

കെജ്രിവാൾ വ്യക്തമാക്കി

പുതുക്കിയ ടൈം ടേബിൾ പ്പിന്നീട് അറിയിക്കുമെന്ന് മഹാരാഷ്ട്ര മെഡിക്കൽ വിദ്യാഭ്യാസ പ്രക്ടൂപ്പ് മന്ത്രി അമിത് ദേശ്മുഖ് പറഞ്ഞു

പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനലക്ഷ്യം സ്വാശ്രയ ശീലമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണെന്ന് കേന്ദ്രമന്ത്രി വൃക്തമാക്കി